ബ്രിട്ടനിൽ നിന്നുള്ള ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എതിരെ നടപടി വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു

സൈബർ സുരക്ഷ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ശിൽപശാല ചണ്ടിഗഢിൽ ഇന്ന് നടക്കും

റഷ്യയിൽ നടക്കുന്ന ഉംഖാനോവ് മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഗൌരവ് ബിധൂരിക്ക് വെങ്കലം

എസ് ഇ

ന്യുഡൽഹിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചുമതയുള്ള ബിട്ടീഷ് വിദേശകാര്യമന്ത്രി ബാരോൺസ് വില്യംസുമായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് തീവ്രവാദ വികസന പ്രവർത്തനങ്ങൾ കൂടിയേറ്റും തുടങ്ങിയ വിഷയങ്ങളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു അന്താരാഷ്ട്ര ഭീകരവാദത്തിനെതിരെ യോജിച്ച സഹകരണം ആവശ്യമാണെന്നും ശ്രീ

സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും തട്ടിപ്പിനും പങ്കാളികളായവരെ ബ്രിട്ടൻ വിട്ടു നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചർച്ചയിൽ ഉന്നയിച്ചു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾക്ക് ബ്രിട്ടൺ അഭയം നൽകരുതെന്നും ഇന്ത്യയിൽ നിന്നുള്ള കുറ്റവാളികളെ മടക്കി കൊണ്ടു വരുന്നതിന് ബ്രിട്ടൻ സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

അന്താരാഷ്ട്ര നാമകരണത്തിന്റെ ഭാഗമായാണ് മാറ്റമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തുന്ന ശിൽപശാലയിൽ പഞ്ചാബ് ജമ്മു കാശ്മീർ ഹിമാചൽപ്രദേശ് ചണ്ടിഗഢ് ഹരിയാന ഉത്തരാഖണ്ഡ് ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് അറിയിച്ചു

നദ്ദ അറിയിച്ചു

മാതൃമരണം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നൂറ്റാണ്ടിന്റെ വികസനലക്ഷ്യങ്ങൾ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങൾ കൂടി കൈവരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു

ഭാരത് നെറ്റ് മുഖേന ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വിവിധ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഇന്റർനെറ്റ് സൌകര്യം ഉപയോഗിക്കാൻ ഈ വൈഫൈ കേന്ദ്രങ്ങൾ സഹായകമാകും

ഇരുനേതാക്കളും സംയുക്ത സമാധാന പ്രസ്താവന പുറത്തിറക്കുമെന്നും ആണവ നിരായുധീകരണം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു

ഇതിന്റെ ഭാഗമായി സാംസ്ക്കാരിക സഹമന്ത്രി ഡോ മഹേഷ് ശർമ്മയുമായുള്ള ഇന്റർവ്യൂ ആണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നു

ഗോൾഡ് ചാനലിലാണ് അഭിമുഖം

വാജ്പേയിയുടെ സുഖവിവരം പ്രധാനമന്ത്രി ആരാഞ്ഞു

നേപ്പാൾ ഭാരത് മൈത്രി ജലസേചന കരാറിന്റെ ഭാഗമായാണ് ധനസഹായം നൽകുന്നത്

ജെ

നേതാക്കളുമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് ജബൽപൂതിൽ കൂടിക്കാഴ്ച നടത്തും ലോക്സഭ സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്കായുള്ള ബി ജെ

സംസ്ഥാനത്തെ ബി ജെ പി സോഷ്യൽ മാധ്യമ വോളണ്ടിയറുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

രാജീവ് ശർമ്മ ലോക്പാൽ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി

ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവായ ബിധുരി ഖസാക്കിസ്ഥാന്റെ സിറോഷിദ്ദീൻ അബ്ദുള്ളയേവി നോടാണ് പരാജയപ്പെട്ടത് പുറത്ത് പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഗൌരവ് ബിധുരിയുടെ മടങ്ങിവരവിലെ ആദ്യ ടൂർണമെന്റായിരുന്നു ഇത്

ഇത് സംബന്ധിച്ച് ബ്രിട്ടൺ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസ്സാക്കിയത് ലിബിയയുടെ തീരക്കടലിലെ കൊള്ള തടയുന്നതിനായി ആവിഷ്ക്കരിച്ചിട്ടുള്ള ഓപ്പറേഷൻ സോഫിയുടെ ഭാഗമായാണ് യൂറോപ്യൻ യൂണിയൻ സേന ലിബിയയിൽ എത്തുന്നത്

എസ്

റവന്യൂ റിക്കവറി നേരിടുന്ന ഉപഭോക്താക്കൾക്കും വിവിധ കോടതികളിൽ വ്യവഹാരം നിലനിൽക്കുന്ന ഉപഭോക്താക്കൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ് വിശദവിവരങ്ങളുമായി കരോൾ എബ്രഹാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മലപ്പുറം ജില്ലകളിലെ പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണവും നീക്കി വരികയാണ്

അന്വേഷണത്തിൽ മറ്റു കുറ്റങ്ങൾ തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചിമൃത്തും വാഹനമോടിച്ചിരുന്ന അനിൽ കുമാർ ഇപ്പോൾ ചികിത്സയിലാണ്

ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു

ആദ്യ ലിസ്റ് അനുസരിച്ചുള്ള വിദ്യാർത്ഥി പ്രവേശനം ഇന്നും നാളെയുമായി നടക്കും